പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി ഗുയൻ സുവാൻ ഫുക്കുമായി ഇന്ന് വെർച്ചൽ കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി സഹകരണം ചർച്ചയാകും

വടക്ക് കിഴക്കൻ മേഖലയുടെ വിനോദസഞ്ചാര സാധൃതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി

ഓസ്ട്രേലിയക്കെതിരായ ആദൃ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കാൻ ഇന്ത്യ

എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തി ജംഷഡ്പുർ എഫ് സിക്ക് രണ്ടാം ജയം

ഇരു രാജൃങ്ങളും തമ്മിലുള്ള നയതന്ത്രു ബന്ധവും പ്രാദേശിക ആഗോള വിഷയങ്ങളും കൂടിക്കാഴ്ച്ചയിൽ ചർച്ചയാകും

അസോചമിന്റെ നൂറ്റാണ്ടിന്റെ സംരംഭകനുള്ള പുരസ്കാരം രത്തൻ ടാറ്റയ്ക്ക് പ്രധാനമന്ത്രി സമ്മാനിക്കും

ദുണ്ഡിഗൽ വ്യോമസേനാ അക്കാഡമിയിൽ പ്രീകമ്മീഷനിങ് പരിശീലനം പൂർത്തിയാക്കിയ ഫ്ലൈറ്റ് കേഡറ്റുകൾക്ക് രാജ്യരക്ഷാമന്ത്രി പ്രെസിഡെന്റ്സ് കമ്മീഷൻ നൽകും ചടങ്ങിനെ തുടർന്ന് വ്യോമാഭ്യാസ പ്രകടനമുണ്ടാവും

നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഇരു രാജ്യങ്ങളും പാലിക്കും അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ പരിശ്രമിക്കാനും ഇന്നലത്തെ യോഗത്തിൽ ധാരണയായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കിഴക്കനേഷ്യാ വിഭാഗം ജോയിന്റ് സെക്രട്ടറിയാണ് ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്

ക്ഷയരോഗത്തെ സംബന്ധിച്ച ദേശീയ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വോയ്സ് ക്ഷയരോഗം കണ്ടെത്തിയാൽ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യണമെന്നത് നിർബന്ധമാക്കിയത് രോഗവ്യാപനത്തിന്റെ തീവ്രത ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകീശ്വാണി

കർണാടക മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പ ചടങ്ങിൽ സന്നിഹിതനാകും

സ്വയംപര്യാപ്ത ഇന്ത്യയ്ക്കും ലോക ക്ഷേമത്തിനുമായി ശാസ്ത്രം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ബയോടെക്നോളജി പരിസ്ഥിതി ആരോഗ്യ വകുപ്പുകളും സി

ആറും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

കർഷകരുടെ ക്ഷേമത്തിനിട്യി് നിരവധി പരിപാടികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ്കെന്നുർ കേന്ദ്രമന്ത്രി അറിയിച്ചു

വയറ്റിളക്കം പനി ്വയറുവേദന ഛർദ്ദി ക്ഷീണം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ കുടലിനെയാണ് രോഗം ബാധിക്കുന്നത്

മിസോറാം ഗവർണർ പി

ശ്രീധരൻ പിള്ള എഴുതിയ ഓ മിസോറാം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വോയ്സ് ഇക്കോ ടൂറിസം സാംസ്കാരിക ടൂറിസം എന്നിവ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിന്റെ മുഖ്യ ചാലകശക്തികൾ ആക്കാൻ കഴിയുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

കോവിഡ് പശ്ചാത്തലത്തിൽ ഇവരിൽ ഭൂരിഭീഗ്രം പേരും പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ്രത്യഞ്ഞെടുക്കാനാണ് സാധ്യത

ഈ മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരം പ്രോ്സ്ാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷനാണ് ഗുരുവായൂർ കൂത്തമ്പലത്തിന് ലഭിച്ചത്

രണ്ടാം ദിവസമായ ഇന്നലെ ക്കളി നിർത്തുമ്പോൾ ഇന്തൃ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കിട്ടുന് ഒമ്പത് റൺസ് എന്ന നിലയിലാണ്

ശക്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് എതിരില്ലാത്ത ഒരു ഗോളിന് ജംഷഡ്പുർ പരാജയപ്പെടുത്തിയത് ഗോൾകീപ്പർ ടി

ഈ ജയത്തോടെ പത്തു പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ജംഷഡ്പുർ